കാഴ്ചവയ്ക്കാൻ നരേന്ദ്രമോദി നയിക്കുന്ന ഗവൺമെന്റിന് കഴിഞ്ഞതായി കേന്ദ്ര മന്ത്രി അമിത് ഷാ

പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്ന് വ്യാപാരി വൃവസായി ഏകോപന സമിതി

ഏഴു വിക്കറ്റ് ജയം

ജെ

ഇതുവരെ ഒരു അഴിമതി ആരോപണവും ഗവൺമെന്റിനെതി ഉയർന്നിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതവും പ്രവർത്തനവും ആധാരമാക്കിയ കർമ്മയോദ്ധ ഗ്രന്ഥ് എന്ന പുസ്തകം ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃഷി ആരോഗ്യ സുരക്ഷ വ്യവസായം തുടങ്ങി വിവിധ മേഖല്കളിൽ പരിഷ്കരണം കൊണ്ടുവരാൻ എൻ ഡി എ

ഇന്ത്യൻ സമയം പൂലർച്ചെ അഞ്ച് മണിയോടെയാണ് പടിഞ്ഞാറൻ ഇറാഖിലെ യു എസ് സൈനിക താവളങ്ങളിൽ മിസൈൽ പതിച്ചത് ഒരു ഡസനിലേറെ മിസൈലുകൾ പതിച്ചെന്നാണ് റിപ്പോർട്ട്

ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ ഖാസിം സൊലൈമാനിയെ അമേരിക്ക ഇറാക്കിൽ വച്ച് കഴിഞ്ഞയാഴ്ച കൊലപ്പെടുത്തിയിരുന്നു

ഇരുനൂറിലേറെ പേർക്ക് പരിക്കേറ്റതായും ഇറാൻ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ടു ചെയ്തു മൂന്നു ദിവസത്തെ പ്രാർത്ഥനകൾക്കും പൊതുദർശനങ്ങൾക്കും ശേഷം സൂലൈമാനിയുടെ ജന്മദേശമായ കെർമാനിലാണ് മൃതദേഹം കബറടക്കിയത് ലക്ഷക്കണക്കിനാളുകൾ പങ്കെടുത്തു

അഡീഷണൽ സെഷൻസ് ജഡ്ജ് സതീഷ് കുമാർ അറോറ പ്രതികൾക്ക് മരണവാറണ്ട് നൽകി കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുകേഷ് വിനയ് ശർമ്മ അക്ഷയ് സിംഗ് പവൻ ഗുപ്ത എന്നിവർക്കാണ് മരണ വാറണ്ട് നൽകിയത് ശിക്ഷാവിധി നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് കൊല്ലപ്പെട്ട പ്പെണ്റ്കുട്ടിയുടെ അമ്മ പറഞ്ഞു നീർഭയക്ക് നീതി ലഭ്യമായുത്തിയി കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ അഭിപ്രായപ്പെട്ടു

എസ്

എൽ ജീവനക്കാരുടെയും സംഘടനകളും പണിമുടക്കിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് റെയിൽവേ ജീവനക്കാർ പണിമുടക്കുന്നില്ല കേരളത്തിൽ ശബരിമല തീർത്ഥാടകരെയും ടൂറിസം മേഖലയെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കി പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു

സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

തിരുത്തലുകൾ സ്ഥലംമാറ്റം എന്നിവ ആഗ്രഹിക്കുന്നവർക്കും അവസരം ലഭിക്കും

ഭക്ഷണം വിളമ്പുസ്ലോൾ ്മേശയിലും പാത്രത്തിലുമുള്ള ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് വിരിക്ക് പേപ്പർ വിരി ഉപയോഗിക്കണം കനം കുറഞ്ഞ് ്സ്റ്റിറോഫോം ഉപയോഗിച്ചുള്ള കപ്പുകൾ തെർമോകോൾ പ്ലേറ്റുകൾ എസ്സിപ്പയ്ക്ക് ബദലായി ഗ്ലാസ് സെറാമിക് സ്റ്റീൽ കപ്പുകൾ പാത്രങ്ങൾ പേപ്പർട്ട എന്നിവ ഉപയോഗിക്കണം പ്ലാസ്റ്റിക് നിർമ്മിത ഒറ്റത്തവണ ഉപയോഗ കപ്പുക്കൾ പാത്രങ്ങൾ സ്പൂൺ ഫോർക്ക് സ്ട്രാ സ്റ്റിറർ എന്നിവയ്ക്ക് പകരം ഗ്ലാസ് സെറാമിക് സ്റ്റീൽ തടിക്കപ്പുകൾ സ്പൂൺ എന്നിവ ഉപയോഗിക്കണം

പ്ലാസ്റ്റിക് കോട്ടോടു കൂടിയ പേപ്പർ കപ്പുകൾ പാത്രങ്ങൾ ബൌളുകൾ ബാഗുകൾ എന്നിവയ്ക്ക് പകരം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് സർട്ടിഫിക്കറ്റോടു കൂടിയ പി എൽ എ

കംപോസ്റ്റബിൾ പ്ലാസ്റ്റിക് ഉല്പന്നങ്ങൾക്ക് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി നേടിയിരിക്കണമെന്നും നിർദേശം നൽകി

അപകട സാദ്ധ്യതയുള്ള മേഖലയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി

സംസ്ഥാനനികുതി കമ്മീഷണർമാരും കേന്ദ്ര നികുതി ചീഫ് കമ്മീഷണർമാരും പങ്കെടുത്തു റവന്യൂ സെക്രട്ടറി ഡോ

നികുതി വെട്ടിപ്പ് തടയാനും വരുമാനം വർധിപ്പിക്കാനും വിവിധ ഏജൻസികൾ തമ്മിലുള്ള വിവര കൈമാറ്റവും സഹകരണവും മെച്ചപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു

ടി വെട്ടിപ്പും വ്യാജ റീ ഫണ്ട് അപേക്ഷകളും കണ്ടെത്താനുള്ള നടപടികൾക്കായി കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ അടങ്ങിയ സമിതി രൂപീകരിക്കാനും തീരുമാനിച്ചു

കേന്ദ്ര വിജീൽഷ്സ് കമ്മീഷണറായി പ്രവർത്തിക്കുന്ന ശ്രീ ശരത് കുമാർ ഇന്നലെ ന്യൂഡൽഹിയിൽ മന്ത്രിയുമായി കേസ് കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തി കഴിഞ്ഞ മൂന്നു വർഷത്തിൽ കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി കമ്മീഷണർ മന്ത്രിയെ ധരിപ്പിച്ചു

നയത്തിൽ നേരത്തേ പറഞ്ഞിരുന്ന ജമ്മു കശ്മീർ സംസ്ഥാന കേഡർ എന്ന വിവരണം ഇതോടെ ഇല്ലാതായതായി പേഴ്സണൽ ആന്റ് പരിശീലന വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു

ശിഖർ ധവാന്റെയും കെ

മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം വെള്ളിയാഴ്ച പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടക്കും

ഇന്ത്യയുടെ ലോക ചാമ്പ്യൻതാരം പി

സിന്ധു വനിതാ സിംഗിൾസിൽ റഷ്യയുടെ ഇവ്ജെനിയയെ നേരിടുമ്പോൾ സൈന നെഹ്വാൾ ബെൽജിയത്തിന്റെ ലിയാനേ താനുമായി ഏറ്റുമുട്ടും പുരുഷ സിംഗിൾസിൽ പി കശ്യപ് കിഡംബി ശ്രീകാന്ത് സമീർ വർമ്മ എച്ച്

പ്രണോയ് ബി സായ് പ്രണീത് എന്നിവരും ഇറങ്ങും